മൂന്നുലക്ഷം പേരെ പരിശോധിക്കും ഐ

അവസാന നടപടിയായി മാത്രമേ സംസ്ഥാനങ്ങൾ ലോക്ഡൌൺ ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കാവൂ എന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ തിരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

വിശദാംശങ്ങളുമായി ജഷിതകുമാരി ദേദ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓക്സിജൻ സിലിണ്ടറുകൾക്ക് ആവശ്യം വർദ്ധിച്ചിട്ടുണ്ട് കേന്ദ്രവും സംസ്ഥാന ഗവൺമെന്റുകളും സ്വകാര്യ മേഖലയും ചേർന്ന് ആവശ്യമായവർക്കെല്ലാം ഓക്സിജൻ എത്തിക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇതര സംസ്ഥാന തൊഴിലാളികളെ അവർ ജോലിചെയ്യുന്ന സ്ഥലത്തുതന്നെ നിലനിർത്തി സഹായിക്കുമെന്ന വിശ്വാസം അവർക്ക് നൽകണമെന്നും പ്രധാനമന്ത്രി സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു

എല്ലാവരും വീടുകളിൽതന്നെ തുടരണമെന്നും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങാവൂ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു

നമ്മളെല്ലാവരും മര്യാദാ പുരുഷോത്തമനായ രാമനെപ്പോലെ മര്യാദ പാലിക്കണം ഇത് പവിത്രമായ റംസാൻ കാലമാണ് ധൈര്യവും ആത്മബലവും നൽകുന്ന മാസമാണ് റംസാൻ

ന്യൂസ് ഡസ്ക് ആകാശവാണി ദേദ ഏറ്റവും കുറഞ്ഞ സമയത്തിനകം ജനങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് ഉത്പാദന ശേഷി തുടർച്ചയായി വർദ്ധിപ്പിക്കണമെന്ന് വാക്സിൻ നിർമ്മാതാക്കളോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു ദ്ദേ സംസ്ഥാനങ്ങൾക്കാവശ്യമായ കൊവിഡ് വാക്സിൻ പൂർണമായും സൌജന്യമായി ഉറപ്പാക്കുന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വാക്സിൻ വിതരണ നയത്തിൽ മാറ്റം വരുത്തണമെന്ന് പ്രധാനമന്ത്രിക്കയച്ച കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു പൊതു വിപണിയിലേക്ക് പ്രത്യേക ക്വാട്ട അനുവദിക്കുകയും അതിന് താങ്ങാവുന്ന വില നിശ്ചയിക്കുകയുമാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു

അത് നിറവേറ്റുന്നതിന് സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ വാക്സിൻ ക്വാട്ട ഉറപ്പാക്കി മഹാമാരിയുടെ സാഹചര്യത്തിൽ സൌജന്യമായി നൽകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ക്രഷിംഗ് ദ കർവ് കാംപയിൻ ആരംഭിച്ച ശേഷം പ്രതിദിനം രണ്ട് ലക്ഷത്തിന് മുകളിൽ ഡോസ് വാക്സിൻ നൽകുന്നുണ്ടെന്നും ഇനി മൂന്ന് ലക്ഷത്തോളം ഡോസ് വാക്സിൻ മാത്രമാണ് ശേഷിക്കുന്നതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു ദേദ സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് വ്യാപനത്തിൽ വൻ വർദ്ധന

എറണാകുളം ജില്ലയിൽ ആദ്യമായി രോഗികളുടെ എണ്ണം മൂവായിരം കവിഞ്ഞു

മലപ്പുറം തൃശൂർ കോട്ടയം ജില്ലകളിൽ ആയിരത്തഞ്ഞൂറിലേയും മറ്റ് ജില്ലകളിൽ ഇതിൽ താഴെയുമാണ് രോഗികൾ

ദേദ സംസ്ഥാനത്ത് കോവിഡ് അതിവ്യാപനം രൂക്ഷമായതിനെ തുടർന്ന് പ്രഖ്യാപിച്ച രാത്രികാല കർഫ്യൂ നിലവിൽ വന്നു

ദര സംസ്ഥാനത്ത് അതിതീവ്ര കോവിഡ് വ്യാപനം തടയാൻ ഗവൺമെന്റ് പ്രതിരോധ നടപടി കർശനമാക്കി കൂടുതൽ വിവരങ്ങളുമായി ഹബീബ് റഹ്മാൻ വോയ്സ് ദേദ രോഗവ്യാപനം രൂക്ഷമാണെങ്കിലും സമ്പൂർണ ലോക്ഡൌണും വാരാന്ത്യ ലോക്ഡൌണും നടപ്പാക്കേണ്ടെന്ന് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല അവലോകന സമിതി യോഗം തീരുമാനിച്ചു നിലവിലെ സാഹചര്യത്തിൽ തൽക്കാലം വാരാന്ത്യ ലോക്ഡൌൺ അടക്കം നടപടികളിലേക്ക് നീങ്ങേണ്ടതില്ലെന്നാണ് ധാരണ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ജില്ലാ ശരാശരിയെക്കാൾ ഉയർന്നു നിൽക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളെയും കൊവിഡ് പരിശോധനയ്ക്ക് വിധേയരാക്കും ഇത്തരം പ്രദേശങ്ങളിലെ മുഴുവൻ വീടുകളിലും കൊവിഡ് പരിശോധന നടത്തും സംസ്ഥാനത്തെ ഐസിയു വെന്റിലേറ്റർ ഉൾപ്പെടെ ചികിത്സാ സൌകര്യങ്ങൾ അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജമാണെന്നും യോഗം വിലയിരുത്തി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ദേദ എറണാകുളം ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ച വാർഡുകളിൽ ഇന്ന് വൈകീട്ട് ആറ് മുതൽ ഏഴുദിവസത്തേക്ക് ലോക്ഡൌൺ ഏർപ്പെടുത്തിയതായി ജില്ലാ കലക്ടർ എസ് സുഹാസ് അറിയിച്ചു

മുഴുവൻ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണുകളായ എടത്തല വെങ്ങോല മഴുവന്നൂർ പഞ്ചായത്തുകൾ പൂർണമായും അടച്ചിടും ദേദ സംസ്ഥാനത്ത് ഇന്നും നാളെയും കോവിഡ് കൂട്ടപരിശോധന നടത്തും മൂന്നുലക്ഷം പേരെ പരിശോധിക്കുകയാണ് ലക്ഷ്യം ദേദ കോഴിക്കോട് ജില്ലയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടിയ സ്ഥലങ്ങളിൽ മൊബൈൽ സംഘം പരിശോധന നടത്തും

ജില്ലയിലെ എല്ലാ ഗവൺമെന്റ് സ്വകാര്യ ആശുപത്രികളിലും പരിശോധന ഉണ്ടാകും

ദേദ കൊല്ലം ജില്ലയിൽ പത്തിന് മുകളിൽ രോഗവ്യാപന നിരക്കുള്ള പഞ്ചായത്തുകളിൽ പ്രതിദിനം അഞ്ഞൂറ് സാമ്പിളുകളും അഞ്ചിനും പത്തിനും ഇടയിലുള്ളവയിൽ മുന്നൂറ് സാമ്പിളുകളും അഞ്ചിൽ താഴെയുള്ള ഇടങ്ങളിൽ ഇരുനൂറ് സാമ്പിളുകളും ശേഖരിക്കും ദേദ കോട്ടയം ജില്ലയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായിരിക്കെ നിയന്ത്രണങ്ങൾ കൂടുതൽ കർക്കശമാക്കി ജില്ലയിൽ ഇന്ന് അഞ്ച് മെഗാ വാക്സിനേഷൻ കേന്ദ്രങ്ങളിലാണ് വാക്സിനേഷൻ ഉണ്ടാവുക ദേദ ലക്ഷദ്വീപിൽ കപ്പൽ ജീവനക്കാരിലും ഡോക്ടർമാർ ഉൾപ്പെടെ ആരോഗ്യ പ്രവർത്തകരിലും കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കി

എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപ്പിറ്റൽസ് നിലവിൽ ചാമ്പ്യൻമാരായ മുംബൈ ഇന്ത്യൻസിനെ ആറുവിക്കറ്റിന് തോൽപ്പിച്ചു

ഇന്ന് രണ്ട് മത്സരങ്ങളുണ്ട്

ദേദ കേരള പ്രീമിയർ ലീഗ് ഫൈനലിൽ ഗോകുലം കേരള എഫ്

ചൈത്രമാസത്തിലെ ഒൻപതാം ദിവസത്തിലെ ശുക്കുപക്ഷത്തിലായതിനാൽ ചൈത്ര നവമിയായും ഇതറിയപ്പെടുന്നു ദേദ രാംനവമി ദിനത്തിൽ ഉപരാഷ്ട്രപതി എം

സദ്ഗുണം നീതി ധൈര്യം അനുകമ്പ എന്നിവയുടെ ആൾരൂപമാണ് ശ്രീരാമനെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു രാമനവമി ആഘോഷങ്ങൾ ശ്രീരാമന്റെ ആദർശാത്മക ജീവിതത്തെ ഓർമ്മപ്പെടുത്തുകയും അദ്ദേഹം കാണിച്ചു തന്ന നീതിയുടെ പാതയിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നുവെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു

രാവിലെ പത്ത് മണി മുതൽ ഉച്ചക്ക് രണ്ടുവരെ മാത്രമായിരിക്കും ബാങ്കിടപാടുകൾ ദര വളാഞ്ചേരി കഞ്ഞിപ്പുര ചുള്ളിച്ചോലയിലെ ഒഴിഞ്ഞ പറമ്പിൽ നിന്ന് ചെങ്കൽ ക്വാറിക്ക് സമീപം കുഴിച്ചിട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തി

ഇവരുടെ വീട്ടിൽ നിന്ന് മുന്നൂറ് മീറ്ററോളം അകലെ വിജനമായ സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയത് രാത്രിയായതിനാൽ മൃതദേഹം പുറത്തെടുക്കാതെ തുടർ നടപടികൾ ഇന്നത്തേക്ക് മാറ്റി ദര മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നലെ നടന്ന പ്പസ്ടു കൊമേഴ്സ് പരീക്ഷയിൽ ആൾമാറാട്ടം നടത്തിയ യുവാക്കൾ പിടിയിലായി കൊണ്ടോട്ടി പുളിക്കൽ സ്വദേശി മുഹമ്മദ് റാഫി സുഹൃത്ത് അരീക്കോട് സ്വദേശി ഷാമിൽ എന്നിവരാണ് അറസ്റ്റിലായത് പ്രൈവറ്റ് രജിസ്ട്രേഷൻ നടത്തിയ വിദ്യാർത്ഥിക്ക് പകരക്കാരനായാണ് ഷാമിൽ പരീക്ഷ എഴുതാനെത്തിയത് ദ്ദേ കൊല്ലം ജില്ലയിലെ ബാങ്കുകളിൽ അക്കൌണ്ട് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചിത ദിവസം മാത്രം ഇടപാട് നടത്തുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം തുടരുമെന്ന് ജില്ലാ കലക്ടർ ബി അബ്ദുൾ നാസർ അറിയിച്ചു